ജി പിയുടെ നിർദേശം

വാർത്തകൾ വിശദമായി കോവിഡ് പ്രതിരോധത്തിൽ യോഗയ്ക്ക് നിർണായക പങ്കെന്ന് പ്രധാനമന്ത്രി ആഗോളതലത്തിൽ നരേന്ദ്രമോദി പറഞ്ഞു ജനങ്ങളെ യോഗ ഒന്നിച്ചു നിർത്തുന്നതായും യോഗയിലൂടെ സ്വയം കരുത്താർജ്ജിക്കണമെന്നും ആറാമത് അന്താരാഷ്ട്ര യോഗ ദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു യോഗദിനം ഐക്യത്തിന്റേതാണ് യോഗദിനം കോവിഡ് പ്രതിരോധത്തിനായാണെന്നും കുടുംബാംഗങ്ങൾക്കൊപ്പം സാമൂഹിക അകലം പാലിച്ച് യോഗ ആചരിക്കണമെന്നും നരേന്ദ്രമോദി പറഞ്ഞു

നമ്മുടെ ശ്വസന വ്യവസ്ഥയെ അത് കരുത്തുറ്റതാക്കും പ്രാണായാമം തുടങ്ങിയവ പരിശീലിച്ചാൽ ശ്വസന പ്രശ്നങ്ങൾ പൂർണമായും ഇല്ലാതാകും രോഗപ്രതിരോധശേഷി മെച്ചപ്പെടുത്താൻ യോഗ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു

കോവിഡ് പശ്ചാത്തലത്തിൽ വലിയതോതിൽ ഒത്തു ചേരലുകൾ അനുവദനീയമല്ലാത്തതിനാൽ കുടുംബത്തോടൊപ്പമാണ് യോഗാദിനം ആചരിക്കുന്നത്

രുഭ സംസ്ഥാനത്ത് ഇന്നലെയും കോവിഡ് ബാധയിൽ വർധന

തുടർച്ചയായി രണ്ടാം ദിവസമാണ് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം മൂന്നക്കം കടക്കുന്നത് സംസ്ഥാനത്ത് കോവിഡ് റിപ്പോർട്ട് ചെയ്ത ശേഷം ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്കാണിത്

രുമ സംസ്ഥാനത്ത് സാമൂഹിക അകലം പാലിക്കുന്നത് ഉൾപ്പെടെ മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പാക്കാൻ പൊലീസിന് നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ചില കടകളിൽ സാമൂഹിക അകലം പാലിക്കാതെ വലിയ തിരക്കുണ്ട് മാനദണ്ഡം ലംഘിച്ച് കട പ്രവർത്തിച്ചാൽ കടുത്ത നടപടികൾക്ക് നിർബന്ധിതമാകുമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു തിരുവനന്തപുരം നഗരത്തിൽ കോവിഡ് ബാധ വർധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രി പറഞ്ഞു ദേഴ സംസ്ഥാനത്ത് ഇന്ന് ലോക്ക്ഡൌൺ ഒഴിവാക്കി കെ മാറ്റ് ഉൾപ്പെടെ വിവിധ പ്രവേശന പരീക്ഷകൾ നടത്തുന്ന സാഹചര്യത്തിലാണ് ഞായറാഴ്ചകളിലെ സമ്പൂർണ ലോക്ക്ഡൌൺ ഇന്ന് മാറ്റിയതെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

ലോക്ക് ഡൌണിൽ ഇളവുകൾ പ്രഖ്യാപിച്ചതിനെത്തുടർന്ന് ഗതാഗതത്തിരക്ക് വർധിക്കുകയും റോഡപകടങ്ങൾ കൂടുകയും ചെയ്ത സാഹചര്യത്തിലാണ് നിർദ്ദേശം മാസ്ക്ക് ധരിക്കാത്തവർക്കെതിരെയും നടപടി സ്വീകരിക്കാൻ നിർദേശം നൽകിയിട്ടുണ്ട് രുമ സമൂഹ വ്യാപന സാധ്യത കൂടി കണക്കിലെടുത്ത് സജ്ജീകരണങ്ങളാണ് പാലക്കാട് ജില്ലയിൽ ഒരുക്കുന്നതെന്ന്മന്ത്രി എ

ബാലൻ പറഞ്ഞു കോവിഡ് അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി

ദേശ കോവിഡിന്റെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പുതിയ തൊഴിൽ സംരംഭങ്ങൾ കണ്ടെത്തേണ്ടത് ആവശ്യമാണെന്ന് മന്ത്രി എ

പലരും ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നതെന്നും മന്ത്രി ത്വശൂരിൽ പറഞ്ഞു രദേ കൊല്ലം ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ടെസ്റ്റുകൾ നടത്തണമെന്നും ഇതിനായി ജില്ലയിലെ എം

എമാരുടെ സഹായത്തോടെ ട്രൂനാറ്റ് മെഷീൻ ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി ജെ

കലക്ട്രേറ്റിൽ കോവിഡ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഭാര്യ അഹം അമ്മ അമ്മായിയമ്മ തൊട്ടാവാടി ഏകലവ്യൻ അങ്കത്തട്ട് തുടങ്ങിയവയാണ് ഉഷാറാണി അഭിനയിച്ച പ്രധാന മലയാള ചിത്രങ്ങൾ രുമ ജലസ്രോതസുകളുടെ സംരക്ഷണത്തിലും ജലത്തിന്റെ നീതിയുക്തമായ വിതരണത്തിലും ഗവർണമെന്റ് പ്രത്യേക ജാഗ്രതയാണ് പുലർത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പാലക്കാട് ജില്ലയിലെ മൂലത്തറ റെഗുലേറ്റർ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചിറ്റൂർ മൂലത്തറ വലതുകര കനാൽ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

തീരദേശത്ത് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ദേദ മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് തണ്ണിത്തുറ പൊന്നാനി മുറിഞ്ഞഴി അഴീക്കൽ പാലപ്പെട്ടി കാപ്പിരിക്കാട് മേഖലകളിൽ കടലേറ്റം രൂക്ഷമായി തുടരുന്നു കഴിഞ്ഞദിവസം ഭാഗികമായി തകർന്ന വീടുകളിൽ പലതും നിലംപൊത്തി രുമ കോഴിക്കോട് ജില്ലയിലെ പുഴകളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന മണൽ നീക്കം ചെയ്യുന്നതിലെ കാലതാമസവും മറ്റ് പ്രശ്നങ്ങളും അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എം കെ രാഘവൻ എം പി മുഖ്യമന്ത്രിക്ക് കത്തയച്ചു കാലവർഷം കനത്തോടെ പുഴകൾ കരകവിഞ്ഞ് പ്രളയ സാധ്യതയുള്ളതിനാൽ അടിയന്തര പരിഹാരം കാണണമെന്നും എം പി കത്തിൽ ആവശ്യപ്പെട്ടു രുമ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ദേവികുളം ഗ്യാപ്പ്റോഡ് ഗതാഗതയോഗ്യമാവുന്നത് വരെ പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ഇടുക്കി കലക്ട്രേറ്റിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടേയും യോഗം തീരുമാനിച്ചു പാതയുടെ നിർമാണ പ്രവൃത്തികൾ കോഴിക്കോട് എൻ ഐ ടിയുടെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടരും രുമ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി വിക്റ്റേഴ്സ് ചാനൽ വഴി പ്രക്ഷേപണം ചെയ്യുന്ന ക്ലാസുകൾ പിന്തുടരാനാവാത്ത ഭിന്നശേഷി കുട്ടികൾക്കായി തയാറാക്കുന്ന പ്രത്യേക വീഡിയോകൾ നാളെ മുതൽ കുട്ടികൾക്ക് ലഭ്യമാവുമെന്ന് സമഗ്ര ശിക്ഷാ സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ എസ്

ഒന്നു മുതൽ ഏഴുവരെ ക്ലാസുകളിലെ ഓരോ വിഷയത്തിനും പഠനസാമഗ്രികളുണ്ടാവും